മകരവിളക്ക് തീത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രം നാളെ അടയ്ക്കും

രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സെമിഫൈനൽ ലൈൻ അപ്പായി കേരളം വിദർഭയേയും കർണാടക സൌ്രാഷ്ട്രയേയും നേരിടും

മന്ത്രിമാരായ പി ജയരാജൻ കെ ശൈലജ കെ ഇ കടന്നപ്പള്ളി രാമചന്ദ്രൻ കിയാൽ എം ഡി വി തുള്സീദാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

കേന്ദ്ര വ്യോമയാന മന്ത്രാലയ അധികൃതരും യോഗത്തിൽ പ്രിങ്കെടുക്കും

ഇതിനായി തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് കേന്ദ്രീകൃത കൺട്രോൾ റൂം സ്ഥാപിച്ചു ഇവിടെനിന്ന് കേരളത്തിലെ എല്ലാ പോലീസ് ജില്ലകളിലെയും കൺട്രോൾ റൂമുകളുമായും പോലീസ് സ്റ്റേഷനുകളു മായും ബന്ധപ്പെടാൻ സൌകര്യമുണ്ടായിരിക്കും

ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ്

ശൈലജ ടീച്ചർ

ടി ആശുപത്രി എ

മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി എസ്

യിൽ പുതിയ ബ്ലോക്കും കൂടുൽ സൌകര്യങ്ങളും ഏർപ്പെടുത്തും

ഇന്നു രാത്രി വരെയ്ാണ് ഭക്തർക്ക് ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവൃദിക്കുക അത്താഴപൂജക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നെള്ളിപ്പ് നടക്കും

ആചാരപ്രകാരം നാളെ രാപ്പിലെ പന്തളം രാജ പ്രതിനിധിയുടെ അയ്യപ്പ ദർശനത്തിനു ശേഷം മകരവിളക്ക് തീർഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടക്കും

തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി രണ്ട് ലക്ഷത്തിലേറെ പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു

മാന്ദമംഗലം തൃശൂർ മാന്ദമംഗലം പള്ളിയിൽ ഞായറാഴ്ച കൂർബാന നടത്തണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം ജില്ലാ കളക്ടർ റ്റി

കളക്ടർ മുന്നോട്ട് വെയ്ക്കുന്ന ഉപാധികൾ അനുസരിക്കാൻ തയ്യാറാണെന്ന് യാക്കോബായ വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയുമെന്നും എന്നാൽ നാളെ കുർബാന നടത്താൻ അവസരം നൽകണമെന്നായിരുന്നു ഇവരുടെ പ്രധാനം ആവശ്യം ജില്ലാ കളക്ടറുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന ഓർത്തഡോക്സ് വിഭാഗം പ്രതികരിച്ചു

എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പാട് കരിമണൽ ഖനനം നിർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി കാനം പി ഐ രാജേന്ദ്രൻ പറഞ്ഞു ഖനനം നടത്തുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ ഐ ആർ ഇ പാലി ക്കുന്നുണ്ടോയെന്നതാണ് പ്രശ്നം

ആലപ്പാടിന് വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരത്തോട് സംസ്ഥാന ഗവൺമെന്റ് നിഷേധാത്മക സമീപനമാണ് പുലർത്തുന്നതെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഖനനം നടത്തുന്ന കമ്പനി മാനദ ണ്ഡങ്ഹൾ പാലിക്കുന്നുണ്ടോയെന്നത് സംബന്ധിച്ച് വസ്തു നിഷ്ഠമായ അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീ വി എം സുധീരൻ മുഖ്യ മന്ത്രിക്ക് കത്തയച്ചു പിണറായി കേരള ബാങ്ക് അടുത്തുതന്നെ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലുള്ള മറ്റ് ഷെഡ്യൂൾസ് ബാങ്കുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതായിരിക്കും കേരള ബാങ്കെന്നും നിലവിലുള്ള സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർക്ക് ഒരുതരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പാപ്പിനിശ്ശേരി സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

പാലക്കാട് കടമ്പഴിപ്പുറം ചിരട്ടിമല വ്യേങ്ങ്ശ്ശേരി പാതയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

സുധാകരൻ പറഞ്ഞു

പോലീസിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിലാണ് ഈ കണ ക്കുകൾ ഉള്ളത്

കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ നഷ്ടമായത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്

ഏറ്റവും കുറവ് മരണമുണ്ടായത് വയനാട് ജില്ലയി ലാണ്

കഴിഞ്ഞ വ്യാഴാഴ്ച് നെൽപാടത്ത് ക്രീട്ടനാ്ശിനി തളിക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിൽസയിലായിരുന്നവരാണ് മരിച്ചത്

പ്രേമചന്ദ്രൻ യു

എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർ എസ് പി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചതിൽ തെറ്റില്ലെന്നും യു ഡി എഫുമായി ആലോചിച്ചാണ് സ്ഥാന്റാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും ശ്രി

ജെ

എംക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പരാമർശം നില്ല്വാരമില്ലാത്തതെന്നും അദ്ദേഹം പറഞ്ഞു

വൈകിട്ട് സംഗീത് നാടക അക്കാദമി അങ്കണത്തിലെ ആക്ടർ മുരളി തിയറ്ററിൽ മന്ത്രി എ

സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി പാലസ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിലെ ആറു വേദികളിലായാണ് മേള അരങ്ങേറുക

ഉത്തർപ്രദേശിക്ക് ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് സൌരാഷ്ട്ര സെമിയിൽ കടന്നത്